ചെന്നൈയിൻ സിറ്റി എഫ് സി യെ നേരിടും

കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു വിനോദ്

ഭീകരത പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികളെ പരാജയപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സുരക്ഷിതവും അഭിവൃദ്ധിയുമുള്ള ദക്ഷിണേഷ്യ സൃഷ്ടിക്കാൻ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു കോവിഡാനന്തരമുള്ളൂ മേഖലയുടെ വികസനത്തിനായി പ്രവർത്തിക്കാൻ ഇത്തൃപ്പ്തിജ്ഞാബദ്ധമാണ് ഇന്ത്യ ബംഗ്ലാദേശ് ഭൂട്ടാൻ പാകിസ്ഥിന്റെ ്മാലദ്വീപുകൾ നേപ്പാൾ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ടുന്നു ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ ധാരണപത്രം ളപ്പുവൃച്ചതിന്റെ സ്മരണയ്ക്കായി എല്ലാവർഷവും ഡിസംബർ ്ഷ്ക്ട്ടീനാണ് ഈ ദിനം ആഘോഷിക്കുന്നത്

സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രവാസികളെ അഭിസംബോധന ചെയ്യും ആത്മനിർഭർ ഭാരതിന് സംഭാവന നൽകുക എന്നതാണ് ഇത്തവണത്തെ പ്രതിപാദ്യ വിഷയം

ദേശീയ അന്തർദ്ദേശീയ രംഗത്ത് വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ പ്രഗത്ഭരായ ഭാരതീയരെ സമ്മേളനത്തിൽ ആദരിക്കും

ഫൈസർ ബയോൺടെക് കമ്പനികൾ ചേർന്ന് നിർമ്മിച്ച വാക്സിനാണ് ഇന്നലെ മുതൽ കുത്തിവയ്ക്കാൻ തുടങ്ങിയത് ജനങ്ങൾക്ക് വ്യാപകമായി വാക്സിൻ നൽകുന്നതിലൂടെ കോവിഡിനെ പ്രതിരോധിക്കാനാകുമെന്ന പുതിയ പ്രതീക്ഷയാണ് ലോകത്തിന് കൈവരുന്നത്

രണ്ടാം ഘട്ടത്തിൽ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ നാളെയാണ് വോട്ടെടുപ്പ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വോട്ടെടുപ്പിനുളള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മിഷൻ അറിയിച്ചു

സ്വാതന്ത്ര്യാനന്തരം ഇതാദ്യമായാണ് ജനങ്ങളുടെ പാർലമെന്റ് നിർമ്മിക്കുന്നതിന് അവസരം സംജാതമായിട്ടുള്ളത്

അത്യാധുനിക രീതിയിൽ ത്രികോണാകൃതിയിൽ നിർമ്മിക്കുന്ന മന്ദിരം പ്ലരിസ്ഥിതി സൌഹൃദവും അതീവ സുരക്ഷാ സംവിധാനങ്ങൾ അവല്യംബിച്ചുള്ളതുമായിരിക്കും

ഉന്നത നിലവാരമുള്ള്ദൃശ്യ ശ്രവ്യ സംവിധാനങ്ങൾ മെച്ചപ്പെട്ട ഇരിപ്പിടങ്ങൾ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുതകുന്ന ഫലപ്രദവും സമഗ്രവുമായ പലായന മാർഗ്ഗങ്ങൾ തുടങ്ങിയവയും പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സവിശേഷതകൾ ആയിരിക്കും

എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി എഫ് സി ചെന്നൈയിൻ സിറ്റി എഫ്

എം

ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളുരുവും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും രണ്ട് ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു

അതേസമയം ഇന്ന് നടക്കുന്ന ചർച്ചയിൽ സർക്കാർ പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമെന്ന് യോഗത്തിന് ശേഷം പ്രതികരിച്ച കർഷക നേതാവ് പറഞ്ഞു സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കർഷക നേതാക്കൾ പ്രത്യേക യോഗം ചേരും

കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്ന ഭാരത് ബയോടെക് ബയോളജിക്കൽ ഇ ലിമിറ്റഡ് എന്നീ കമ്പനികളാണ് സംഘം സ്ലന്ദർശിക്കുന്നത്

നോർവെ സംഘത്തെ ബഹുവിധ സഹകരണ വീഭാഗം ഡയറക്ടർ ജനറൽ മെററ്റ് ജെൽ നയിച്ചു ഇന്ത്യൻ സംഘത്തിന് വിദേശ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി പ്രകാശ് ഗുപ്ത നേതൃത്വം നൽകി

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അശുതോഷ് അഗ്നിഹോത്രയുടെ നേതൃത്വത്തിലുള്ള എട്ട് അംഗ സംഘമാണ് സന്ദർശനം നടത്തിയത് സ്ഥിതിഗതികൾ വിലയിരുത്തിയ സംഘം തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാളി പളനിസാമിയുമായി കൂടിക്കാഴ്ച നടത്തി